ഒമ്പതാമത് അന്താരാഷ്ട്ര കരകൌശല മേളയ്ക്ക് കോഴിക്കോട് ഇരിങ്ങലിൽ തുടക്കമായി പരമ്പരാഗത തൊഴിലുകളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെ മഹാത്മാഗാന്ധിയുടെ സങ്കൽപ്പം തന്നെയാണ് യാഥാർത്ഥ്യ മാവുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മ്ദ് ഖാൻ ദേശീയ സരസ് മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും കോഴിക്കോട്ട് യു

എ ചുമത്തി അറസ്റ്റിലായ രണ്ട് വിദ്യാർഥികളുടെ കേസ് എൻ

എ ഏറ്റെടുത്തു ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും ങ്ങ ൽ സമാധാനം സമത്പം അഹിംസ തുടങ്ങിയ ഗാന്ധിയൻ ചിന്തകളുടെ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറ ഞ്ഞു ആഗോളതലത്തിൽ ഗാന്ധിജിയുടെ സ്വീകാര്യത വർധിച്ചു വരികയാ ണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഗാന്ധിയൻ ആദർശങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ എല്ലാ പൌരൻമാരും തയാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ പൊലീസ് വെടിവെ പ്പിൽ മംഗുളൂരുവിൽ രണ്ടുപേർ മരിച്ചു ജനങ്ങൾ ശാന്തരവാണമെന്ന് കർണ്ണാ ടക മുഖ്യമന്ത്രി ബി

എന്നാൽ സമാധാനപരമായി നടത്തുന്ന പ്രതിഷേധങ്ങളെ ഗവൺമെന്റിന് അടിച്ച മർത്താൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് സിദ്ധാരാമയ്യ ടിറ്ററിൽ പറഞ്ഞു അതിനിടെ ബംഗുളൂരുവിൽ നിരോധനാജ്ഞ ലംഘിച്ച് ആയിരക്കണക്കിനാളു കൾ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗ ങ്ങളിലായി മലയാളി വിദ്യാർഥികൾ അക്രമിക്കപ്പെടുന്നതിൽ മുഖ്യമന്ത്രി പിണ റായി വിജയൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ ഉത്കണ്ഠ അറിയിച്ചു അക്രമണം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രിക്കയച്ച കത്തിൽ അഭ്യർത്ഥി ച്ചു പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് ബി

പി വർക്കിങ് പ്രസിഡന്റ് ജെ

നദ്ദ വ്യക്തമാക്കി മൂന്ന് അയൽ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായെത്തി ഇന്ത്യ യിൽ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി അവഗുണിച്ച് വോട്ടുബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ന്യൂഡൽഹിയിൽ പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചാൽ അത് കൂടുതൽ ഉച്ചത്തിലാ കുമെന്ന് അവർ പറഞ്ഞു കോൺഗ്രസും സിപിഐഎമ്മും പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എം ടി രമേശ് കുറ്റപ്പെടുത്തി

പൈതൃക ഗ്രാമങ്ങളുടെ സൌന്ദരൃം അവതരിപ്പിക്കുന്നതിലൂടെയും പരമ്പരാഗത തൊഴിലുകളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെയും മഹാത്മാഗാന്ധിയുടെ സങ്കൽപം തന്നെയാണ് യാഥാർഥ്യമാക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയിൽ ഒമ്പതാമത് അന്താരാഷ്ട്ര കലാകരകൌശല മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഇന്ത്യൻ പരമ്പരാഗത കലാകാരന്മാരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി എന്ന നിലയിൽ സർഗ്ഗാലയ മികച്ച പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു

ദേശീയ സരസ് മേള ഇന്ന് കണ്ണൂരിൽ ആരംഭിക്കും മന്ത്രി എ

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ സൂക്ഷമ ചെറുകിട സംരംഭകരുടെ ഉത്പന്നങ്ങൾക്ക് രാജ്യത്തെമ്പാടും വിപണന സംവിധാനം ഒരുക്കുക എന്നതാണ് ദേശീയ സരസ് മേളയിലൂടെ ഉദ്ദേശിക്കുന്നത്

ഉദ്യോഗസ്ഥരടക്കം ഒരു വിഭാഗത്തിന്റെ ഇടപെടലുകൾ വഴി പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗവൺമെന്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വിനോദ് സഞ്ചാർ വകുപ്പും മലപ്പുറം ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി നടപ്പാക്കിയ തിരൂർ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയം ഭരണസ്ഥാപനങ്ങൾ പദ്ധതി നിർവ്വഹണത്തിലെ പിന്നാക്കാവസ്ഥ കൾ മറികടക്കണമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു വയനാട് വൈത്തിരി വില്ലേജിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രളയ ബാധിത പ്രദേശങ്ങളിലെ റോഡ് നിർമ്മാണമടക്കം പ്രവൃത്തികൾ മഴക്കാലത്തിന് മുമ്പെ തീർക്കണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളി സ്ഥലം എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ

വയനാട് ജില്ലാ കേരളോത്സവം കണിയാമ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട്ട് യു

എ കേസ് ചുമത്തി രണ്ടു വിദ്യാർഥികളെ പൊലീസ് അറസ്റ്റ് ചെയ്ത കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു മാവോയിസ്റ്റ് ബന്ധ ത്തിന്റെ പേരിൽ അറസ്റ്റിലായ ത്വാഹ ഫസൽ അലൻ ഷുഹൈബ് എന്നി വർക്കെതിരായ കേസുകളാണ് എൻ

എ ഏറ്റെടുത്തത് ഇവർക്കെതിരെ കൊച്ചിയിലെ പ്രത്യേക എൻ

എ കോടതിയിൽ എഫ്

നേരത്തെ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സി ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തി കൊൽക്കത്തയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലേലത്തിൽ ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന താരമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനഞ്ചര കോടിക്കാണ് താരത്തെ സ്വന്തമാക്കിയത്

റോബിൻ ഉത്തപ്പയെ രാജസ്ഥാൻ റോയൽസ് മൂന്ന് കോടിക്ക് സ്വന്തമാക്കി ഇന്ത്യയുടെ യൂസഫ് പത്താൻ ചേതേശ്വർ പൂജാര എന്നിവരെ ലേലം കൊണ്ടില്ല കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക്സ് മീറ്റ് ഇന്ന് സമാപിക്കാനിരിക്കെ പുരുഷ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളെജും വനിതാ വിഭാഗത്തിൽ മേഴ്സി കോളെജും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളെജും മുന്നിട്ട് നിൽക്കുന്നു പുരുഷൻമാരുടെ നൂറ് മീറ്ററിൽ ക്രൈസ്റ്റ് കോളെജിലെ അജിത്ത് ജോണും വനിതകളിൽ റിനു അഗസ്റ്റിനും വേഗമേറിയ താരങ്ങളായി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യുവജന ദേശീയോദ്ഗ്രഥന ക്യാമ്പ് പാലക്കാട് മലമ്പുഴ ഗിരിവികാസിൽ ഇന്ന് ആരംഭിക്കും മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ രാവിലെ ക്യാംപ് ഉദ്ഘാടനം ചെയ്യും

ആരോഗ്യ സർവകലാശാല യൂണിയൻ ദക്ഷിണമേഖലാ കലോത്സവത്തിന് ഇന്ന് കൊല്ലം പാരിപ്പള്ളിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തുടക്കമാകും

തിങ്കളാഴ്ച സമാപിക്കും

കാർഷികാധിഷ്ഠിത സംരംഭകരെ ശാക്തീ കരിച്ച് സുസ്ഥിര വിപണി നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ചക്ക മാങ്ങ അരി വാഴപ്പഴം സുഗന്ധവൃജ്ഞനങ്ങൾ തുടങ്ങിയ വിളകളിൽ അധിഷ്ഠിത മായ മേള ശനിയാഴ്ച സമാപിക്കും

മന്ത്രി പ്രൊഫ

രവീന്ദ്രനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ആർപ്പൂക്കരയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയനുസരിച്ച് കോട്ടയം ജില്ലയിൽ ആറ് മത്സ്യ സങ്കേതങ്ങളും ആറ് കക്കാ പുനരുജ്ജീവന യൂണിറ്റുകളും സ്ഥാപിക്കും കൃഷി വകുപ്പിന്റെ മധ്യമേഖല ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിന് തൃശൂർ മണ്ണുത്തി യിൽ മന്ത്രി വി എസ് സുനിൽകുമാർ ശില്പാസ്ഥാപനം നടത്തി ആധുനിക കൃഷി രീതിയിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് യന്ത്രവത്കരണത്തിനാ ണെന്ന് മന്ത്രി പറഞ്ഞു പന്തൽ അനുബന്ധ സാധന സാമഗ്രികൾ വാടകക്ക് കൊടുത്ത് ഉപജീവനം നട ത്തുന്നവർക്കായി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഗവൺമെന്റ് പരി ഗണിക്കുമെന്ന് മന്ത്രി എ

കൊച്ചിയിൽ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ എട്ടാമത് സംസ്ഥാന സമ്മേ ളനത്തിന്റെ ഭാഗമായി നടന്ന കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരു ന്നു മന്ത്രി കാഴ്ചപരിമിതരായ ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകുന്ന ദേശീയ അവാർഡ് നേടിയ വഴുതക്കാട് ഗവൺമെന്റ് അന്ധ വിദ്യാലയത്തിലെ ബേബി ഗിരിജ ടീച്ചറെ മന്ത്രി കെ കെ ശൈലജ ഇന്ന് ആദരിക്കും

നികുതി ഏകീകരണത്തിന്റെ ഭാഗമായി ലോട്ടറിയുടെ ജി

കാഴ്ചപരിമിതർ ഉൾപ്പെടെ നിരവധി ഭിന്നശേഷിക്കാരായ ലോട്ടറി തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്ന നികുതി വർധന ഉടൻ പിൻവലിക്കണമെന്ന് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ

വയനാട് മേപ്പാടി ചുളിക്ക ചോലമല പൊൻകുണ്ടിൽ കായംകുളം സ്വദേശികളായ മൂന്ന് യുവാക്കൾ മുങ്ങിമരിച്ചു

വയനാട് സന്ദർശിക്കാനെത്തിയ ഇവർ കുളിക്കുന്നതിനിടെയാണ് അപകടത്തിൽപെട്ടത് കൊല്ലം പവിത്രേശ്വരം പെരിങ്ങോലപ്പുറയിൽ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും അമ്പതിനായിരും രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു കേസിൽ കൊല്ലം അഡീഷനൽ സെഷൻസ് കോടതിയാണ് പ്രതി പനവേലി എന്ന ശിവൻകുട്ടിയെ ശിക്ഷിച്ചത്

വാഹന പരിശോധനക്കിടയിൽ കെ

സി ബസ് യാത്രക്കാരനായ മഹാരാഷ്ട്ര സ്വദേശിയിൽനിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ പിടികൂടിയത് അടുത്ത വ്യാഴാഴ്ചത്തെ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ജില്ലകളിലെ ശാസ്ത്ര വിദ്യാർഥികളും ശാസ്ത്രജ്ഞരും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തും സംസ്ഥാനത്ത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ പൂർണ വലയ സൂര്യഗ്രഹണവും മറ്റ് ജില്ലകളിൽ ഭാഗിക സൂര്യഗ്രഹണവുമാണ് ദൃശ്യമാകുക